വാർത്തകൾ വിശദമായി കോവിഡ് രണ്ടാം തരംഗം നേരിടാൻ ശക്തമായ ആരോഗ്യ സംവിധാനങ്ങൾ സജ്ജീകരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു കോവിഡ് മഹാമാരി ഉയർത്തുന്ന ഭീഷണി മനുഷ്യരാശിയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചുലയ്ക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഒന്നാംഘട്ടത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും ഉയർന്ന തോതിൽ രോഗവ്യാപനം ഉണ്ടാവുന്നുണ്ടെന്നും ഇത് കേരളത്തിലെ മാത്രം അവസ്ഥയല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടെസ്റ്റ് പോസിറ്റീവിറ്റി നിരക്ക് താരതമ്യേന കൂടുതലായ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് കോട്ടയം തൃശൂർ എറണാകുളം കാസർകോട് ജില്ലകളിൽ കൂടുതൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞ തരംഗത്തിൽ ഡിലെ ദ പീക്ക് എന്ന നയമാണ് സ്വീകരിച്ചതെങ്കിൽ ഇത്തവണ ക്രഷ് ദ കർവ് എന്ന സ്ട്രാറ്റജിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു മാസ്ക് ധരിക്കുക കൈകൾ ശുചിയാക്കുക അവനവന് ചുറ്റും സുരക്ഷാ കവചം തീർക്കുക എന്ന അടിസ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോവുന്നതോടൊപ്പം ആളുകൾ കൂട്ടം ചേരുന്നതും അടഞ്ഞ സ്ഥലങ്ങളും അടുത്തിടപഴകലും ഒഴിവാക്കുകയും പരമാവധി ആളുകൾക്ക് വേഗത്തിൽ വാക്സിനേഷൻ നൽകുകയും ചെയ്യുക എന്നതാണ് രോഗം ചെറുക്കാൻ പ്രധാനമായി ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കേന്ദ്ര ഗവൺമെന്റിന്റെ പുതിയ വാക്സിനേഷൻ നയം കേരളമുൾപ്പെടെ സംസ്ഥാനങ്ങളെ പ്രതികൂലമായി ബാധിച്ചിരിക്കയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ഇത്തരത്തിൽ വാക്സിന്റെ വില കുതിച്ചുയർന്നാൽ കോവിഡ് പ്രതിസന്ധി തീർത്ത സാമ്പത്തിക വിഷമതകളിൽ ഉഴലുന്ന സംസ്ഥാനങ്ങളെ അതു വലിയ പ്രതിസന്ധിയിലാക്കുമെന്നും പിണറായി പറഞ്ഞു

കല്യാണം ഗൃഹപ്രവേശം തുടങ്ങിയ ചടങ്ങുകൾ ഈ ദിവസങ്ങളിൽ നടത്താൻ അനുമതിയുണ്ട്

മറ്റു ജീവനക്കാരെ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ജില്ലാ കലക്ടർമാർക്ക് ഉപയോഗിക്കാം

മറ്റന്നാൾ ഗവൺമെന്റ് ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് അവധിയായിരിക്കും എന്നാൽ അന്ന് നടക്കേണ്ട ഹയർ സെക്കന്ററി പരീക്ഷയ്ക്ക് മാറ്റമില്ല എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഓൺലൈൻ മുഖേന മാത്രം ക്ലാസുകൾ നടത്തണം ട്യൂഷൻ ക്ലാസുകളും സമ്മർ ക്യാമ്പുകളും നിർത്തിവെയ്ക്കണം ബീച്ചുകൾ പാർക്കുകൾ എന്നിവിടങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പൂർണമായി പാലിക്കണം പഴയ വാർഡുതല സമിതികൾ പുനരുജ്ജീവിപ്പിക്കും രാത്രികാല നിയന്ത്രണങ്ങൾ തുടരും എന്നാൽ ഭക്ഷണവിതരണത്തിന് തടസമുണ്ടാകാതെ ശ്രദ്ധിക്കണം

രമേ സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷന് ആരോഗ്യ വകുപ്പ് പുതിയ മാർഗനിർദേശങ്ങൾ പുറപ്പെടുവിച്ചതായി മന്ത്രി കെ

ഇന്നു മുതൽ ഒന്നാമത്തേയും രണ്ടാമത്തേയും ഡോസുകൾ മുൻകൂട്ടി ഓൺലൈൻ രജിസട്രേഷൻ വഴി മാത്രമായിരിക്കും നൽകുക സ്പോട്ട് രജിസ്ട്രേഷൻ ഉണ്ടാവില്ല ക്യൂ ഒഴിവാക്കാനായി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ കോവിഡ് വാക്സിനേഷൻ സെന്ററുകളിൽ ടോക്കൺ വിതരണം ചെയ്യുകയുള്ളുവെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു

ഒന്നാം ഡോസ് സ്വീകരിച്ച ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കും രണ്ടാം ഡോസ് നൽകണമെന്നും മന്ത്രി പറഞ്ഞു മുൻഗണനാ പട്ടികയിൽ ഉള്ളവർക്ക് ബന്ധപ്പെട്ട വകുപ്പുകൾ അക്ഷയ കേന്ദ്രങ്ങൾ സന്നദ്ധ സംഘടനകൾ എന്നിവ മുഖേന രജിസ്ട്രേഷന് ജില്ലാതലത്തിൽ നടപടിയെടുക്കണം വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കണം

രുര കേന്ദ്ര ഗവൺമെന്റിന്റെ വാക്സിൻ നയത്തെ കുറിച്ച് മുഖ്യമന്ത്രിയും കോൺഗ്രസും ബോധപൂർവം തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു

കേന്ദ്രത്തിന്റെ സൌജന്യം പ്രതീക്ഷിച്ചാണോ തിരഞ്ഞെടുപ്പ് സമയത്ത് വാക്സിൻ സൌജന്യമായി നൽകുമെന്ന് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ചതെന്ന് മുരളീധരൻ ചോദിച്ചു രമേ കോവിഡ് രണ്ടാം തരംഗം കൂടുതൽ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ വാക്സിൻ നിർമ്മാണമേഖലയിലെ പ്രശസ്ഥമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് അടിയന്തരമായി വാക്സിൻ നിർമ്മാണ അനുമതി നൽകണമെന്ന് പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ എം

രാഘവൻ എം

ആവശ്യപ്പെട്ടു ദേഴ സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി

നാലായിരത്തോളം പേർക്കാണ് ഇതാദ്യമായി ജില്ലയിൽ ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്

ഇന്ന് വൈകീട്ട് ആറു മുതൽ ഈ വാർഡുകളിൽ കർശന നിയന്ത്രണങ്ങൾ നിലവിൽ വരും എല്ലാ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായ വരാപ്പുഴ പഞ്ചായത്ത് പൂർണ്ണമായി അടച്ചിടും രുര കൊല്ലം ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും പ്രധാന കേന്ദ്രങ്ങളിലും കൂടുതൽ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ പ്രവർത്തന സജ്ജമാക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ബി

ഇന്നും നാളെയുമായി വെർച്വലായി നടക്കുന്ന നേതാക്കളുടെ കാലാവസ്ഥാ ഉച്ചകോടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്

രുഭ ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനും സൺറൈസേഴ്സ് ഹൈദരാബാദിനും വിജയം

ഇതോടെ ചെന്നൈ പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തി ചെന്നൈയിൽ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദഹാബാദ് പഞ്ചാബ് കിങ്സിനെ ഒമ്പത് വിക്കറ്റിന് തോൽപ്പിച്ചു

ദേഴ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കർശന നിയന്ത്രണങ്ങളോടെ നടത്തുന്ന തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്നലെ നടന്നു ഇന്നാണ് പൂര വിളംബരച്ചടങ്ങ്

ആദ്യം തിരുവമ്പാടിയും പിന്നീട് പാറമേക്കാവും തിരികൊളുത്തി

ആൾക്കൂട്ടം അകന്ന് നിൽക്കുമെങ്കിലും പൂരത്തിന്റെ പ്രൌഢിക്ക് കുറവില്ല സ്വരാജ് റൌണ്ടിലെ പൂര പന്തലുകൾ വർണങ്ങളിൽ കുളിച്ച് മിഴി തുറന്നു കഴിഞ്ഞു

നെയ്തലക്കാവ് ഭഗവതി തെക്കേ ഗോപുര നടതുറക്കുന്നതോടെ തൃശൂർ പൂരത്തിന്റെ ചടങ്ങുകൾക്ക് തുടക്കമാകും രുമ ആലപ്പുഴ ജില്ലയിൽ എല്ലാ വേനൽ ക്യാമ്പുകളും നിരോധിച്ച് ജില്ലാ കലക്ടർ ഉത്തരവായി

ഭൂമിയേയും അതിന്റെ ഇത്തവണത്തെ ഭൌമ ദിന വൈവിധ്യങ്ങളേയും സംരക്ഷിച്ച് നിർത്തുന്നതിന് ബോധവൽക്കരണം നടത്തുന്നതിനായാണ് എല്ലാ വർഷവും ആഗോള തലത്തിൽ ഭൌമ ദിനം ആചരിക്കുന്നത് രെട കൊവിഡ് വാക്സിൻ വിതരണം വീടുതോറും കയറി നടത്താൻ സാധ്യമല്ലെന്ന് കേന്ദ്ര ഗവൺമെന്റ് കോടതിയെ അറിയിച്ചു